എം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തും

പി ജയരാജൻ

ഏഷ്യൻകപ്പ് ഫുട്ബോളിൽ ഇന്ത്യയ്ക്ക് ഇന്ന് നിർണായക മത്സരം ഒരു ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തും കൊല്ലം ബൈപ്പാസും തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നവീകരണ പ്രവർത്തനങ്ങളും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും

ബൈപ്പാസ് ഉദ്ഘാട നത്തിനുശേഷം പീരങ്കി മൈതാനിയിൽ ബി ജെ പിയുടെ മഹാറാലി പൊതുസമ്മേളനവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും മടങ്ങി തിരുവനന്തപുരത്തെത്തുന്ന അദ്ദേഹം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തും തിരുവനന്തപുരത്ത് സ്വദേശി ദർശൻ പദ്ധതിയിലെ നവീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തശേഷം മോദി ഡൽഹിക്കു മടങ്ങും

ആലപ്പാട് കരിമണൽ ഖനനം നിർത്തിവെക്കാൻ കഴിയില്ലെന്ന് മന്ത്രി ഇ

കമ്പനി പൂട്ടാൻ ഗവൺമെന്റ് തയ്യാറല്ലെന്നും സമരം എന്തിനാണെന്ന് അറിയില്ലെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു ആലപ്പാട് വിഷയത്തിൽ പരാതിയുമായി ആരും ഗവൺമെന്റിനെ സമീപിച്ചിട്ടില്ലെന്നും ഇടതുമുന്നണിയിൽ ഭിന്നതയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതുസംബന്ധിച്ച വിവാദങ്ങൾ അടിസ്ഥാന രഹിതമാണെന്ന് മന്ത്രി പറഞ്ഞു കടൽ തരുന്ന സമ്പത്താണ് കുഴിച്ചെടുക്കുന്നതെന്നും ഇത് പൂർണമായും സംഭരിക്കാനായാൽ ഇപ്പോഴുള്ളതിന്റെ മൂന്ന് മട ങ്ങിലധികം പേർക്ക് തൊഴിൽ നൽകാൻ കഴിയുമെന്നും മന്ത്രി കണ്ണൂരിൽ വ്യക്തമാക്കി ആലപ്പാട് കരിമണൽ ഖനനത്തിനെതിരായി സമരം ചെയ്യുന്നവർ മലപ്പുറത്തുകാരല്ലെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഇവരെത്തിയതെന്നും മന്ത്രി ഇ പി ജയരാജൻ മലപ്പുറത്തുകാർക്കെതിരെ നടത്തിയ പ്രസ്താവന പിൻവലിക്ക ണമെന്നും അദ്ദേഹം പറഞ്ഞു കരിമണൽ ഖനനംമൂലം പാരിസ്ഥി തിക ഭീഷണി നേരിടുന്ന ആലപ്പാട് സന്ദർശിച്ചശേഷം മാധ്യമപ്ര വർത്തകരോട് സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല

ആലപ്പാട് വിഷയത്തിൽ ഗവൺമെന്റ് സമരക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാവണമെന്നും ചെന്നിത്തല പറഞ്ഞു

സി

എം സുധീരൻ ഉൾപ്പെടെ നേതാക്കൾ അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു ആലപ്പാട് നടക്കുന്നത് അതിജീവനത്തിനുള്ള സമരമാണെന്ന് വി

സമരം ന്യായമാണെന്നും ജനകീയ പ്രക്ഷോഭത്തെ മന്ത്രി ഇ

ആലപ്പാട് സന്ദർശിക്കാൻ മന്ത്രി മാർ തയ്യാറാവണമെന്നും സുധീരൻ പറഞ്ഞു

ശബരിമലയിൽ ഇന്ന് മകരവിളക്കും മകരസംക്രമ പൂജയും

മകരവിളക്ക് ദർശനത്തിന് മണിക്കൂറുകൾമാത്രം ശേഷിക്കെ ആയിരങ്ങൾ ശരണമന്ത്രങ്ങളു മായി സന്നിധാനത്തും പരിസരങ്ങളിലും നിറഞ്ഞിരിക്കുകയാണ് മകരജ്യോതി കാണാവുന്ന സ്ഥലങ്ങളിലെല്ലാം തീർത്ഥാടകർ താവ ളം തീർത്തുകഴിഞ്ഞു തിരക്കും സുരക്ഷയും കണക്കിലെടുത്ത് ഇന്ന് ഉച്ച മുതൽ കെ എസ് ആർ ടി സിയടക്കം വാഹനങ്ങൾ പമ്പയിലേക്ക് കടത്തിവി ടില്ല ഉച്ച മുതൽ മകരസംക്രമപൂജ കഴിയുന്നതുവരെ പമ്പയിൽനിന്ന് ഭക്തരെ മല കയറാനും അനുവദിക്കില്ല മകരവിളക്കിന് അയ്യപ്പവിഗ്രഹത്തിൽ ചാർത്തുന്ന തിരുവാഭര ണങ്ങളുമായി പന്തളത്തുനിന്ന് പുറപ്പെട്ട ഘോഷയാത്ര ളാഹ യിൽനിന്ന് പുലർച്ചെ മൂന്നാം ദിവസത്തെയാത്ര ആരംഭിച്ചു ചെറി യാനവട്ടംവഴി നീലിമല കയറി വൈകിട്ട് അഞ്ചുമണിയോടെ ശരം കുത്തിയിലെത്തുന്ന ഘോഷയാത്രാസംഘത്തെ ആചാരപരമായി സ്വീകരിച്ച് സന്നിധാനത്തേക്ക് കൊണ്ടുപോകും സന്നിധാനത്ത് മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഘോഷയാത്രയെ സ്വീകരിക്കും തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് തിരുവാഭരണ ങ്ങൾ ഏറ്റുവാങ്ങി വിഗ്രഹത്തിൽ അണിയിച്ച് ദീപാരാധന നടത്തു മ്പോഴാണ് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുന്നത് ഇടുക്കിയിൽ മകരവിളക്ക് കാണാൻ കഴിയുന്ന പുല്ലുമേട് പരുന്തുംപാറ പാഞ്ചാലിമേട് എന്നിവിടങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി തീർത്ഥാടകരുടെ സുരക്ഷ യും സൌകര്യവും മുൻനിർത്തി വിവിധ വകുപ്പുക ളുടെയും ഗ്രാമപ്പഞ്ചായത്തു കളുടെയും സഹകരണ ത്തോടെയാണ് ഒരുക്കങ്ങൾ മകര വിളക്ക് കാണാനെത്തുന്നവരുടെ സുരക്ഷക്കായി പൊതുമരാമത്ത് വകുപ്പ് പാഞ്ചാലിമേട്ടിലും പുല്ലുമേട്ടിലും ബാരിക്കേഡുകൾ നിർമിച്ചു പുല്ലുമേട് സത്രം വണ്ടിപ്പെരിയാർ കുമളി പാഞ്ചാലിമേട് പരുന്തുംപാറ എന്നീ കേന്ദ്രങ്ങളിൽ ഫയർഫോഴ്സ് ക്യാമ്പുചെയ്യും വെളിച്ചത്തിനായ് അസ്കാലൈറ്റു പ്രവർത്തിപ്പിക്കും ആരോഗ്യവകുപ്പ് പീരുമേട് കുമളി വണ്ടിപ്പെരിയാർ ആശുപത്രികളിൽ മതിയായ സൌകര്യങ്ങൾ ഏർപ്പെടുത്തി യിട്ടുണ്ട് വനംവകുപ്പിന്റെ എലിഫന്റ് സ്ക്വാഡ് പ്രവർത്തനം ആരംഭിച്ചു കാട്ടുതീ പ്രതിരോധത്തിനും സംവിധാനം ഏർപ്പെടുത്തി

തമിഴ്നാട് ബസ്സുകൾക്ക് പമ്പയിൽ പ്രവേശിക്കാൻ അനുമതി നൽകിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്ന് മന്ത്രി എ

ഗതാഗത സെക്രട്ടറി ആരോടും ആലോചി ക്കാതെ ഉത്തരവിറക്കിയെന്ന കെ

ആർ ടി സി എം ഡി ടോമിൻ ജെ തച്ചങ്കരിയുടെ ആക്ഷേപം അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രി ഒരു വാർത്താചാനലിനോട് പറഞ്ഞു ഗതാഗത സെക്രട്ടറി ഏകപക്ഷീയമായാണ് തീരുമാനമെടുത്തതെന്നും ഉത്തരവ് കെ

ടി സി യ്ക്ക് തിരിച്ചടിയാണെന്നും തച്ചങ്കരി കുറ്റപ്പെടു ത്തിയിരുന്നു

ചില വർഗീയവാദികളും സ്ഥാപിത താൽപ്പര്യക്കാരും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ കോടതിവിധിയെ എതിർക്കാൻ ശ്രമിച്ചത് തീർത്ഥാ ടനകാലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായി അദ്ദേഹം ശബരിമല യിൽ അറിയിച്ചു

എന്നാൽ എല്ലാ വെല്ലുവിളി കളെയും ഗവൺമെന്റിന് മറികടക്കാനായെന്നും കടകംപള്ളി വ്യക്തമാക്കി ശബരിമലയിൽ മകരവിളക്കിന് എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി പത്തനംതിട്ട ജില്ലാകലക്ടർ പി ബി നൂഹ് അറി യിച്ചു ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് ആവശ്യപ്പെട്ട് ബി ജെ പി ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും മകരവിളക്ക് ദർശനത്തിന് ശബരിമലയിൽ പോകാൻ അനുവദിക്കണ മെന്നും ഇതിന് ശബരിമല സ്ഥിതി ചെയ്യുന്ന മേഖലയിൽ പ്രവേശിക്കരുതെന്ന വ്യവസ്ഥ ഇളവു ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് ഹർജി

കേന്ദ്രഗവൺമെന്റിന്റെ മികച്ച ഭരണത്തിന്റെ ഫലമായി ബി ജെ പി സംസ്ഥാനത്ത് അക്കൌണ്ട് തുറക്കുക മാത്രമല്ല വൻ മുന്നേറ്റം നട ത്തുകതന്നെ ചെയ്യുമെന്നും കണ്ണന്താനം അവകാശപ്പെട്ടു

എഫ് നേതൃയോഗങ്ങൾ വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് ചേരും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ചർച്ചചെയ്യാനാണ് മുന്നണികൾ യോഗം ചേരു ന്നത് രാജ്യത്തെ കമ്പ്യൂട്ടർ മൊബൈൽ ശൃംഖലകൾ നിരീക്ഷി ക്കാനും വിവരങ്ങൾ ശേഖരിക്കാനും അന്വേഷണ ഏജൻസി കൾക്ക് അധികാരം നൽകുന്ന നടപടിയിൽ സുപ്രീംകോടതി കേന്ദ്ര ത്തിന് നോട്ടീസയച്ചു

ഐ

ആറാഴ്ചയ്ക്കകം നോട്ടീസിന് മറുപടി നൽകണം

കോളേജ് കാമ്പസിൽ കുത്തേറ്റു മരിച്ച മഹാരാജാസ് കോളേജു വിദ്യാർത്ഥിയും എസ്

ഐ ഇടുക്കി ജില്ലാ കമ്മിറ്റിയംഗവുമായിരുന്ന അഭിമന്യുവിന്റെ കുടുബത്തിന് ഇടുക്കി വട്ടവടയിൽ പാർട്ടി നിർമ്മിച്ചു വീടിന്റെ താക്കോൽദാനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കേരളത്തിലെ കലാലയങ്ങളിൽ വർഗ്ഗീയ സംഘടനകൾ ശക്തിയാർജ്ജിച്ചതിന്റെ ഇരയാണ് അഭിമന്യുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അഭിമന്യുവിന്റെ സ്മരണാർത്ഥം പഞ്ചായത്ത് സ്ഥാപിച്ച അഭിമന്യു മഹാരാജാസ് ലൈബ്രറിയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ പ്രീകാർട്ടർ പ്രതീക്ഷയുമായി ഇന്ത്യ ഇന്ന് ബഹ്റൈനെ നേരിടും

ഒരു ജയവും ഒരുതോൽവിയുമായി ദ പോയിന്റ് ലഭിച്ച ഇന്ത്യ രണ്ടാം സ്ഥാനത്താണ് ഒരു പോയിന്റ് മാത്രം ലഭിച്ച ബഹ്റൈൻ മൂന്നാം സ്ഥാനത്താണ് ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ യു എ ഇ ഇന്ന് തായ്ലന്റിനെ നേരിടും അടുത്തസാമ്പത്തിക വർഷത്തെ ബജറ്റിൽ വ്യക്തികളുടെ ആദായനികുതി നിരക്കിൽ മാറ്റംവരുത്തണമെന്ന് വ്യാപരസംഘട നയായ ഫിക്കി ആവശ്യപ്പെട്ടു

അഗസ്ത്യാർകൂടം യാത്രയ്ക്ക് തുടക്കമായി സ്ത്രീകൾക്ക് അഗസ്ത്യാർകൂടം ട്രക്കിംഗിന് അനുമതി കിട്ടിയശേഷം ആദ്യ മായാണ് യാത്രാസംഘം പുറപ്പെടുന്നത്

രാവിലെ ഏഴിന് ബോണക്കാട് ബേസ് ക്യാമ്പിൽ നിന്ന് യാത്രാസംഘം പുറ പ്പെട്ടു കോഴിക്കോട്ട് നാലുദിവസത്തെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഇന്നലെ സമാപിച്ചു സമാപന സമ്മേളനം എഴുത്തുകാരി കെ

സാംസ്കാരിക വകുപ്പിന്റെ സഹകര ണത്തോടെ ഡി സി കിഴക്കേമുറി ഫൌണ്ടേഷനാണ് ഫെസ്റ്റിവെൽ സംഘടിപ്പിച്ചത് മറയൂരിൽ വൻ ചന്ദനവേട്ട കാസർകോട് സ്വദേശികളായ മൂന്നുപേർ പിടിയിലായി

കാസർകോട് ചെങ്കള വിദ്യാനഗർ സ്വദേശികളായ ഇബ്രാഹിം മഷൂദ് മുഹമ്മദലി ആലമ്പാടി സ്വദേശി എൻ എം ആഷിഖ് എന്നിവരാണ് വനപാല കരുടെ പിടിയിലായത് ക്ഷേത്രകലാ അക്കാദമിയുടെ പ്രസിദ്ധീകരണമായ ക്ഷേത്രക ലയുടെ പ്രകാശനം അൽപ്പസമയത്തിനകം കണ്ണൂരിൽ പി

ശ്രീ മതി എം പി നിർവഹിക്കും മാട്ടുപ്പട്ടിയിലെത്തുന്ന സഞ്ചാരികൾക്കായി വാട്ടർ സ്കൂട്ടർ ജെസ്കി സർവീസ് തുടങ്ങി സംസ്ഥാന വൈദ്യുതി വകുപ്പിനു കീഴിലെ ഹൈഡൽ ടൂറിസം സ്വകാര്യസംരംഭകരായ ഫ്ളാഷ് അഡ്വഞ്ചേഴ്സ് സ്പോർട്സ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യ ത്തിലാണ് ജെസ്കി സർവീസ് തുടങ്ങിയത് രണ്ടുപേർക്ക് അഞ്ഞൂറു രൂപയാണ് ഒരു റൌണ്ട് സവാരി നടത്തുന്നതിന് ഇൌടാക്കുന്നത്

മൂന്നാറിൽ വിനോദസഞ്ചാരികളുടെ വൻ തിരക്ക് തമിഴ്നാട്ടിൽ പൊങ്കൽ അവധി തുടങ്ങിയതും തണുപ്പ് ആസ്വദി ക്കാൻ കൂടുതൽ വിനോദസഞ്ചാരികളെത്തിയതുമാണ് രണ്ടുദിവ സമായി തിരക്ക് വർധിക്കാൻ കാരണം